ദശാബ്ദത്തിൽ യുവസമൂഹം നിർണ്ണായക പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രാദേശിക ഉല്പന്നങ്ങൾക്ക് ജനങ്ങൾ പ്രോത്സാഹനം നൽകണമെന്നും മൻ കി ബാതിൽ ശ്രീ

മേഖലകളിൽ കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ജാഗ്രതാ നിർദ്ദേശംപ്രഖ്യാപിച്ചു

വിശദാംശങ്ങളുമായി രഞ്ജിത്

ദരിദ്ര ജനവിഭാഗങ്ങൾക്കിടയിൽ ഇതിലൂടെ സമൃദ്ധി കൊണ്ടുവരാൻ സാധിക്കുമെന്നും പ്രകടിപ്പിച്ചു അദ്ദേഹം പ്രതീക്ഷ ഭാരതീയ ഉല്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന മഹാത്മാഗാന്ധിയുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു

രാജ്യത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും യുവാക്കൾക്ക് സുപ്രധാന പങ്ക് വഹിക്കാനുന്നെ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

കൂട്ടായ ശക്തിയിലൂടെ പുരോഗതിയും വികസനവും പ്രാപിക്കുന്ന യുവ ജനതയ്ക്കാവും പുതിയ ദശാബ്ദത്തിൽ ഇന്ത്യസാക്ഷ്യം വഹിക്കുക എന്നും അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യയെ ആധുനിക വൽക്കരിക്കുന്നതിൽ ഭാവി തലമുറയ്ക്ക് വലിയ പങ്ക് വഹിക്കാനാവും

തങ്ങളുടെ ചുമതലകൾ തിരിച്ചറിയാൻ യൂപ്പാക്കൾക്ക് സാധിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

പതിനേഴാം ലോക്സഭയുടെ രണ്ടു സഭകളുടെയും പ്രവർത്തനം ക്രിയാത്മകമായിരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ഇത് ഭാരതത്തിന്റെ ജനാധിപത്യത്തിന്റെ ശക്തിയും ജനാധിപത്യത്തോടുള്ള കൂറുമാണ് തെളിയിക്കുന്നതെന്നും ഇരു സഭകളുടെ അധ്യക്ഷന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും പാർലമെന്റംഗങ്ങളെയും അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

അടുത്തിടെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വിവേകാനന്ദ ശിലാസ്മാരകം സന്ദർശിച്ച കാര്യവും ഉപരാഷ്ട്രപതി എം

പ്രധാന വിനോദ സഞ്ചാരക്കേഴ്ങ്ങൾ രാഷ്ട്രതിയെയും ഉപരാഷ്ട്രപതിയെയും പോലുള്ള ഷ്യൂപ്പ് വ്യക്തികൾ സന്ദർശിക്കുന്നത് രാജ്യത്ത് എല്ലാവർക്കും പ്രേര്ണ്യാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പൌരാണിക ജ്യോതി ശാസ്ത്ര്യൂഅറിവുകൾ സ്വായത്തമാക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ അദ്ദേഹം ആ മേഖലയിൽ രാജ്യം മുന്നേറുകയാണെന്നും പറ്റഞ്ഞു പൂനെയിലും കൊഡൈക്കനാലും ലഡാക്കിലും അതിസൂക്ഷ്മ ദൃഷ്ടിയുള്ള വമ്പൻ ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ച കാര്യം പ്രധാനന്ത്രി അനുസ്മരിച്ചു

മഹാനായ ആര്യഭടൻ തന്റെ കാലക്രിയ എന്ന ഗ്രന്ഥത്തിൽ സൂര്യ ചന്ദ്ര ഗ്രഹണങ്ങളെപ്പറ്റി വിശദമായി പറയുന്നുന്നും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി

മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഹരിവൻഷ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രീയങ്കാഗാന്ധി കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി പശ്ചിമബംഗാൾ ഡൽഹി മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര രാജസ്ഥാൻ മുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും

എ എ എൻ ആർ സി എന്നിവയെക്കുറിച്ച് ബി ജെ പി സംഘടിപ്പിക്കുന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായി മുംബൈയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ ആരുടെയും നിർബന്ധപ്രകാരമല്ല ഇവിടെ ജീവിക്കുന്നതെന്നും മറിച്ച് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് അവരെ ഇവിടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും ശ്രീ നഖ്പി പറഞ്ഞു രാഷ്ട്രീയ താല്പര്യത്തോടെയുള്ള കുപ്രചരണങ്ങളാണ് ചില ആളുകൾ നടത്തുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി

രാജ്യത്തെ ഒരുപ്പൌര്നും ഈ നിയമത്തെ ഭയപ്പെടേ ണ്ടതില്ലെന്ന് അദ്ദേഹം റാഞ്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾ സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തിൽ വീണുപോകരുതെന്ന് അദ്ദേഹ്ം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ പീഡിത ജനവിഭാഗത്തിന് പൌരത്വം നൽകാനാണ് പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതെന്നും അദ്ദേഹം വൃക്തമാക്കി

അരുൺജെയ്റ്റ്ലിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ പുറത്തിറക്കിയ ദ റിനൈസൻസ് മാൻ ദ മെനി ഫെയ്സെറ്റ്സ് ഓഫ് അരുൺ ജെയ്റ്റ്ലി എന്ന പുസ്തകം ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ന്യൂഡൽഹിയിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പുരസ്കാരം സമ്മാനിക്കും

കർണാടകയിലെ ഉടുപ്പിയിലുള്ള കെ എം

ആശുപത്രികൾ സ്കൂളുകൾ ഹോസ്റ്റലുകൾ തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ മുൻ കേന്ദ്രമന്ത്രി ഉമാഭാരതി തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു

പഞ്ചാബ് ഹരിയാന ഡൽഹി രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബിഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതീവ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചു